പിൻവലിക്കൽ കൂടി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ അന്തിമ മത്സര ചിത്രം തെളിയും

ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പത്രിക സ്വീകരിച്ചത്

എലത്തൂർ വടകര കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ ലഭിച്ച എല്ലാ പത്രികകളും സാധുവായി നാദാപുരം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പത്രിക തള്ളിയത് ഇവിടെ അഞ്ചു പേരുടെ പത്രിക തള്ളി

കൊണ്ടോട്ടിയിൽ കക്ഷിരഹിത സ്ഥാനാർത്ഥി കാട്ടുപ്പരുത്തി സുലൈമാൻ ഹാജിയുടെ നാമ നിർദേശ പത്രികയിൽ നാളെ അന്തിമ തീരുമാനമെടുക്കും ദേദ ഇടുക്കിയിൽ സൂക്ഷ്മ പരിശോധനയിൽ എട്ട് പത്രികകൾ തള്ളി

ദ്ദേ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിന് എതിരെ പോലീസ് കേസെടുത്തെന്നു കരുതി സ്വർണ കള്ളകടത്ത് കേസ് അവസാനിപ്പിക്കില്ലെന്ന് കേന്ദ്ര മന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു

ഡി എ അമ്പലപ്പുഴ മാവേലിക്കര കൺവൻഷനുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേദ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിനെതിരെ കേസ്സെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രേരിപ്പിച്ചത് കുറ്റബോധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി

എന്ത് ചോദിച്ചാലും കേന്ദ്ര ഏജൻസികൾ വിരട്ടേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്ന് കഴക്കൂട്ടത്ത് ബി

ദേദ ശബരിമല വിഷയത്തിൽ സംസ്ഥാന ഗവ സുപ്രീംകോടതിയിൽ വിശ്വാസികൾക്ക് അനുകൂലമായ പുതിയ സത്യവാങ്മൂലം നൽകുമോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ആചാരം സംരക്ഷിക്കുന്ന രീതിയിൽ ഉമ്മൻചാണ്ടി ഗവ നൽകിയ സത്യവാങ്മൂലം പിൻവലിച്ച പിണറായി ഗവൺമെന്റിന്റെ നടപടി തെറ്റാണെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു ദേദ ശബരിമല സംബന്ധിച്ച എൻ എസ് എസ് നിലപാടിൽ സിപിഐഎമ്മിന് അവസരവാദമില്ലെന്ന് പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു വിശ്വാസിക്ക് വിശ്വാസിയായി തന്നെ ജീവിക്കാമെന്ന സമീപനമാണ് സിപിഐഎമ്മിന്റേതെന്ന് കോടിയേരി തിരുവനന്തപുരത്ത് അറിയിച്ചു

ദ്ദേ ശബരിമല വിഷയത്തിൽ സത്യസന്ധമായ നിലപാട് ഉണ്ടായിരുന്നുവെങ്കിൽ സിപിഐഎം നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുമായിരു ന്നില്ലെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞു സംസ്ഥാന ഗവ സ്വീകരിച്ച സമീപനത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അതിനെതിരെ രംഗത്തു വന്നത് എങ്ങനെയാണെന്ന് സുകുമാരൻ നായർ ചോദിച്ചു

പ്രചാരണ പരിപാടികളും കൺവെൻഷനുകളും പുരോഗമിക്കുകയാണ്

മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ഉത്തര ആസാമിൽ മൂന്ന് റാലികളെ അഭിസംബോധന ചെയ്യും

ദേദ അർഹരായ മുഴുവൻ ആളുകളും എത്രയും വേഗം കൊവിഡ് പ്രതിരോധ വാക്സിൻ എടുക്കണമെന്ന് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു നാളെ മുതൽ ജില്ലയിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ തുടങ്ങും ദേദ കോഴിക്കോട് ജില്ലയിലെ അഞ്ചു സ്വകാര്യ കേന്ദ്രങ്ങളിൽ മാത്രമേ ഇന്ന് കോവിഡ് വാക്സിനേഷൻ നൽകൂവെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

ദേദ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം അടിയന്തരമായി വർധിപ്പിക്കാൻ ജില്ല കലക്ടർ നിർദേശിച്ചു ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലായി തുടരുന്നതും ടെസ്റ്റുകളോട് പൊതുജനങ്ങൾ വിമുഖത കാണിക്കുന്നതും ശ്രദ്ധയിൽപെട്ടതിനെ തുടർന്നാണിത്

ദേദ ഇന്ന് അന്താരാഷ്ട്ര വനദിനം

വനപുനസ്ഥാപനം വീണ്ടെടുക്കലിന്റെയും ക്ഷേമത്തിന്റെയും മാർഗം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം

ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ദേവേന്ദ്ര കുമാർ വർമ്മ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡോ

വനമിത്ര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും വനദിന പ്രതിജ്ഞയുമെടുക്കും സാമൂഹ്യവനവൽക്കരണ വിഭാഗത്തിന്റെ കീഴിൽ വിവിധ ജില്ലകളിലും വനദിനാചരണച്ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ മൂന്നെണ്ണം ജയിച്ചാണ് ഇന്ത്യ പരമ്പര നേടിയത് ദ്ദേ ഐ ലീഗ് ഫുട്ബോളിലെ നിർണായക മത്സരത്തിൽ ഇന്ന് ഗോകുലം കേരള എഫ് സി മുഹമ്മദൻസിനെ നേരിടും

ചൂട് കൂടിയതും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമാണ് വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഇടയാക്കിയത്

ഐ നേതാവുമായ സി

കോട്ടയം പുതുപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് രാവിലെ മൂന്നാറിലേക്കു കൊണ്ടുപോകുന്ന മൃതദേഹം സി

ഐ ഓഫീസിൽ പൊതു ദർശനത്തിന് വയ്ക്കും ദേദ കോഴിക്കോട് ജില്ലയിൽ സമാധാനപരമായ പോളിങ് ഉറപ്പു വരുത്തുന്നതിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പൊതു നിരീക്ഷകരുടെ യോഗം നിർദ്ദേശിച്ചു

ദേദ കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് തീരുമാനം

ദേദ നിയമസഭാ തിരഞ്ഞടുപ്പിനോടനുബന്ധിച്ചുണ്ടാകുന്ന മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്ത് തിരഞ്ഞെടുപ്പ് നടപടികൾ പരിസ്ഥിതി സൌഹൃദമാക്കുന്നതിന് ഇടുക്കി ജില്ലാ കലക്ടർ എച്ച് ദിനേശന്റെ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു മാസ്ക് ഗ്ലൌസ് ഫേസ്ഷീൽഡ് പി പി ഇ കിറ്റ് എന്നിവ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിങ് സാമഗ്രികൾക്കൊപ്പം വിതരണ കേന്ദ്രത്തിൽ നിന്ന് ഏറ്റുവാങ്ങണമെന്ന് യോഗം നിർദേശിച്ചു